എസ് പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ്

നിസർഗ ചുഴലിക്കാറ്റ് അത്തീതീവ്രമായി മഹാരാഷ്ട്ര ഗുജറാത്ത് തീരത്തേക്ക് കരുതൽ നട്ടപടി ഊർജ്ജിതം പ്രധാനമന്ത്രി സ്ഥിതി വിലയിരുത്തീ മുംബൈയിൽ വ്യോമ ട്രെയിൻ സർവ്വീസുകൾ പുനഃക്ര്മീകരിച്ചു

മൂന്നു ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്

എട്ട് വിമാനങ്ങൾ കേരളത്തിലേക്ക്

എസ് പ്രസിഡന്റ് ഡോണൾഡ് ട്രംപുമായി ആശയവിനിമയം നടത്തി

നരേന്ദ്രമോദിയെ പ്രസിഡന്റ് ട്രംപ് ക്ഷണിച്ചു

എസ് പ്രസിഡന്റ് അറിയിച്ചു കോവിഡിന് ശേഷമുള്ള ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുള്ള വേദിയാണ് വേണ്ടതെന്ന് പ്രപ്രധാനമന്ത്രി പറഞ്ഞു

ഇരു രാജ്യങ്ങളിലെയും കോവിഡ് സ്ഥിതി ഇന്ത്യ ചൈനാ അതിർത്തിയിലെ പ്രശ്നം ലോകാരോഗ്യ സംഘടനയില്പ്പ്രിഷ്ക്കരണ നടപടികൾ എന്നീ കാര്യങ്ങൾ സംബന്ധിച്ച് മുണ്ട്യു നേതാക്കളും ആശയവിനിമയം നടത്തി

കോവിഡിന് ശേഷമുള്ള ആഗോള സ്ഥിതിയിൽ ഇന്ത്യ യു എസ് ബന്ധം സുപ്രധാനമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

എൻ രക്ഷാസമിതി റിപ്പോർട്ടെന്ന് ഇന്ത്യ അഫ്ഗാനിസ്ഥാന്റെ സുസ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും ഭീഷണിയായ വൃക്തികളേയും പ്രസ്ഥാനങ്ങളേയും സംബന്ധിച്ച രക്ഷാസമിതി റിപ്പോർട്ട് പരാമർശിക്കവെ വിദേശകാരൃമന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീ വാസ്തവയാണ് മാധൃമങ്ങളുടെ ചോദൃങ്ങൾക്ക് മറുപടിയായി ഇക്കാരൃം വൃക്തമാക്കിയത്

ഒരു ദിവസം ഇത്രയധികം പേർക്ക് രോഗബാധ കണ്ടെത്തുന്നത് ഇതാദ്യമാണ് തിരുവനന്തപുരത്ത് കോവിഡ് ബാധയെ തുടർന്ന് ഒരാൾ കൂടി മരിച്ചു രോഗം സ്ഥിരീകരിച്ചതിൽ പാലക്കാട് ജില്ലയിലെ ഒരു ആരോഗ്യ പ്രവർത്തകയും ഉൾപ്പെടുന്നു

മലപ്പുറം ജില്ലയിലെ ആനക്കയം പുതിയ ഹോട്സ് സ്പോട്ടായി

അമേരിക്കയിൽ രോഗബാധിതരുടെ എണ്ണം പതിനെട്ടര ലക്ഷം കവിഞ്ഞു

ഇരു സംസ്ഥാനങ്ങളിലും കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിസർഗ ചുഴലിക്കാറ്റ് സംബന്ധിച്ച സാഹചര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തി സാധ്യമായ എല്ലാ മുൻ കരുതലുകളും സുരക്ഷാ നടപടികളും സ്വീകരിക്കാൻ ജനങ്ങളോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു

ഇന്ന് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലെർട്ടും ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്

എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം കൊല്ലം ആലപ്പുഴ എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് മഴ വ്യാപകമായതോടെ സംസ്ഥാനത്തെ പല നദികളിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയായ ഇടുക്കി ഡാമിലെ ജലനിരപ്പുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു

ഇവയിൽ എട്ട് വിമാനങ്ങൾ കേരളത്തിലേക്കാണ് ദുബായിൽ നിന്ന് കൊച്ചി കണ്ണൂർ കോഴിക്കോട് ട്രിച്ചി ബംഗളുരു കൊൽക്കത്ത എന്നിവിടങ്ങളിലേക്കാണ് സർവ്വീസ് നടത്തുന്നത് അബുദാബിയിൽ നിന്ന് അമൃത്സർ കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം എന്ന്രീവിടങ്ങളിലേക്ക് നാല് വിമാനങ്ങളുണ്ടാവും ദോഹയിൽ നിസ്റ്റ് ക്ട്ച്ന്നൈ തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്കും മസ്ക്കറ്റിൽ നീന്നു് ഭൂവനേശ്വർ കണ്ണൂർ എന്നിവിടങ്ങളിലേക്കും ഓരോ സ്ർവ്വീസ് ഉണ്ടാകും

ഗുജറാത്ത് മഹാരാഷ്ട്ര പഞ്ചാബ് ഉത്തർപ്രദേശ് ബിഹാർ എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ സർവ്വീസുകൾ നടത്തിയത്

എസ് ആർ ടി സി അന്തർജില്ലാ ബസുകൾ സർവീസ് പുനഃരാരംഭിച്ചു ടിക്കറ്റ് നിരക്കിൽ വർദ്ധനയില്ല യാത്രക്കാർക്ക് എല്ലാ സീറ്റുകളിലും ഇരുന്ന് യാത്ര ചെയ്യാവുന്നതാണ്

യാത്രയ്ക്ക് മുൻപും യാത്രയ്ക്ക് ശേഷവും കൈകൾ ശുചിയാക്കണം

കഴിഞ്ഞ ഏപ്രിൽ ്മേയ് ജൂൺ മാസങ്ങളിലായി വിവിധ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കേന്ദ്രപൂളിൽ നിന്ന് സ്വീകരിച്ച ധാന്യങ്ങളുടെ കണക്കും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്

എസ് ജലാശ്വ ഇന്നലെ തമിഴ്നാട്ടിൽ തൂത്തുക്കുടിയിലെ ചിദംബരനാർ തുറമുഖത്തെത്തി

സി